നിയന്ത്രണങ്ങൾ കർശനമായി നടപ്പാക്കു്മെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ

പൊതുഗതാഗതം അനുവദിക്കില്ല സംസ്ഥാനത്ത് സൌജന്റി ഭക്ഷ്യക്കിറ്റ് വിതരണം ഈ മാസം കൂടി തുടരും രോഗപകർച്ച ഉയർന്നു വരുന്നതിനാൽ വീടിന്നുള്ളിൽ കുടുംബാംഗങ്ങൾ ഒത്തുകൂടുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് നിർദ്ദേശം

എറണാകുളം കോഴിക്കോട് തിരുവനന്തപുരം ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് സംസ്ഥാനത്ത് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം നാല് ലക്ഷം കവിഞ്ഞു

കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഒരു മാസം കൂടി സൌജന്യ ഭക്ഷ്യക്കിറ്റ് വ്യത്ത്രണ്ടം തുടരുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

വീടിനകത്ത് രോഗപകർച്ചയ്ക്ക് സാധൃത കൂടുതലായതിനാൽ കുടുംബാംഗങ്ങൾ ഒത്ത് കൂടുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു ഭക്ഷണം ടി

കാണൽ പ്രാർത്ഥന എന്നിവ കൂട്ടായ് ചെയ്യുന്നത് ഒഴിവാക്കണം

പുറത്തുപോയി വരുന്നവർ കുട്ടികളുമായി ഇടപഴകുന്നത് ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു

ഭക്ഷണം കഴിച്ചശേഷം നിർബന്ധമായും പാത്രം സോപ്പിട്ടു കഴുകണമെന്നും നിർദ്ദേശമുണ്ട്

അത്യാവശ്യ കാര്യങ്ങ ൾക്ക് പുറത്തു പോകുന്നവർ പൊലീസ് പാസ് വാങ്ങണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം ലോക്ഡൌണിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേയ്ക്ക് വോയിസ് സംസ്ഥാനത്ത് നാളെ രാവിലെ ആറ് മണി മുതൽ ആരംഭിക്കുന്ന ലോക്ക്ഡൌണിൽ അവശ്യസേവനങ്ങൾക്ക് മീഗ്രമായിരിക്കും അനുമതി പൊതുഗതാഗതം ഉണ്ടായിരിക്കില്ല

വാക്സിനേഷനായി സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്യാം

മെഡിക്കൽ സേവനങ്ങൾ ചരക്കു ഗതാഗതം നിർമാണ പ്രവൃത്തികൾ കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ എന്നിവ തുടരാം

വർക്ക്ഷോപ്പുകൾ ആഴ്ചയവസാനം മാത്രം തുറക്കാം ബാങ്കുകൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പ്രവർത്തിപ്പിക്കാം ഹാർബറുകളിൽ ലേല നടപടി ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളുമുണ്ട്

സമയം പാഴാക്കാതെ ഉണർന്ന് പ്രവർത്തിക്കുകയായിരുന്നു ഇവരെന്ന് മുഖൃമന്ത്രി പറഞ്ഞു

വാക്സിൻ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള വ്യാജ പ്രചാരണം നടക്കുന്നതായി അദ്ദേഹം അറിയിച്ചു

ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നു ലാബുടമകളുടെ ആവശ്യം ഹൈക്കോടതി സിംഗിൾ ൃ ്ബഞ്ച് തള്ളി

ടെസ്റ്റിങ് കിറ്റുകളുടെ ചെലവ് ഗണ്യമായി കുറഞ്ഞ സ്മാഹചര്യത്തിലാണ് പരിശോധന നിരക്ക് കുറച്ചതെന്ന് സർക്കാരും കോടതിയെ അറിയിച്ചു അതേ സമയം വാക്സിൻ വിതരണത്തിന് കർമ്മ പദ്ധതി രൂപീകരിക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ട് ഹർജികൾ പരിഗണിക്കവേയാണ് കോടതി നിർദ്ദേശം

മറ്റുള്ളവർക്ക് സമയം ക്രമീകരിച്ചു നൽകുകയും ഒരുപാട് പേർ ഒന്നിച്ചു കൂടുന്ന് സാഹചര്യം ഒഴിവാക്കുകയും വേണമെന്ന് നിർദേശത്തിൽ പറയുന്നു

കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മാത്രമേക്ക് വാക്സിനേഷനുണ്ടാകൂ

അവശ്യ വസ്തുക്കൾ വിൽക്കുന്ന കടകൾക്ക് അനുവദിച്ചിരിക്കുന്നതു പോലെ മറ്റു വ്യാപാര സ്ഥാപനങ്ങളും ഒന്നിടവിട്ട ദിവസങ്ങളിൽ സമയ ബന്ധിതമായി തുറക്കാൻ അനുവദിക്കണമെന്ന് സംഘടന യുടെ സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു വ്യാപാര നഷ്ടത്തിനു പുറമേ വ്യാപാര സ്ഥാപനങ്ങളിലെ സ്റ്റോക്കു കൾ നശിച്ചു പോകാനും സമ്പൂർണ ലോക്ക്ഡൌൺ ഇടയാക്കുമെന്ന് സംഘടന ആശങ്ക പങ്കുവച്ചു

വിവിധ അധൃയന വകുപ്പുകളിലെ എല്ലാ ഒഴിവുകളും ഒറ്റ യൂണിറ്റായി കണക്കാക്കി സംവരണ തസ്തികകൾ നിശ്ചയിച്ച് നിയമനം നൽകിയ നടപടിയാണ് റദ്ദാക്കിയത് ഈ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് ജസ്റ്റിസ് അമിത് റാവൽ അധ്യക്ഷനായ ബഞ്ച് ഉത്തരവിട്ടത്

പുനസംഘടന് നിയമസഭാ തിരഞ്ഞെടുപ്പില്ല് കോൺഗ്രസ്സിന്റെ പ്രകടനം വിലയിരുത്താൻ ചേർന്ന് രാഷ്ട്രീയ കാര്യ സമിതി യോഗത്തിൽ കെ

സി

യുടെ പുന് സംഘടനയെക്കുറിച്ച് ചർച്ച ചെയ്തതായി റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിലു ണ്ടായ പരാജയത്തിന്റെ ഉത്തരവാദിത്തം നിലവിലെ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട് പാർട്ടിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകണമെന്നും സമഗ്രമായ നേതൃമാറ്റം ഉണ്ടാകണമെന്നും ഉള്ള അഭിപ്രായമാണ് ഭൂരിഭാഗം അംഗങ്ങളും ഉയർത്തിയതെന്നാണ് സൂചന

ശബരിമല ശബരിമല ക്ഷേത്രത്തിലെ ഇടവമാസ പൂജകളിൽ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്